ബെഹ്റ അവശ്യ സേവന വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് ഉണ്ടെങ്കിൽ വേറെ പാസ്സിന്റെ ആവശ്യമില്ല വീട്ടു ജോലിക്കാർ ഹോം നഴ്സ് എന്നിവർ ഉൾപ്പെടെ തൊഴിലാളികൾക്കുവേണ്ടി തൊഴിലുടമ യ്ക്ക് പാസ്സിന് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് രജ്ന കെ ആസാദ് ഓഡിയോ രംഭ വളരെ അത്യാവശ്യഘട്ടങ്ങളിൽ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമേ പൊലീസിന്റെ ഓൺലൈൻ പാസിന് അപേക്ഷിക്കാവൂ എന്ന് ഡി ജി

മരുന്ന് ഭക്ഷ്യവസ്തുക്കൾ എന്നിവ വാങ്ങാൻ പോകുന്നവർ സത്യവാങ്മൂലം കയ്യിൽ കരുതിയാൽ മതി എന്നാൽ ഈ സൌകര്യം ദുരുപയോഗം ചെയ്താൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ലോക്നാഥ് ബെഹ്റ മുന്നറിയിപ്പ് നൽകി

രും സംസ്ഥാനത്ത് കോവിഡ് ചികിത്സാ മാർഗനിർദേശങ്ങൾ പുതുക്കി എല്ലാ സ്വകാര്യ ആശുപത്രികളും ഉടൻ തന്നെ കോവിഡ് ഔട്ട് പേഷ്യന്റ് വിഭാഗം തുടങ്ങണമെന്ന് മാർഗനിർദേശത്തിൽ പറയുന്നു ഗവൺമെന്റ് ആശുപത്രികളിലെ പനി ക്ലിനിക്കുകൾ ഇനി മുതൽ കോവിഡ് ക്റ്റിനിക്കായി മാറ്റണം

ഗ്രാമപ്രദേശങ്ങളിൽ അടക്കം കോവിഡ് ചികിത്സ എത്തിക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യം താലൂക്ക് ആശുപത്രികളിൽ ഓക്സിജൻ കിടക്കകളും ചുരുങ്ങിയത് അഞ്ച് വെന്റിലേറ്ററുകളും ഒരുക്കണമെന്നും മാർഗ നിർദേശത്തിൽ പറയുന്നു

മറ്റുജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗികളുടെ എണ്ണം

രമേ കൊവിഡ് രണ്ടാം തരംഗം രൂക്ഷമായ സാഹചര്യത്തിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ന് മുതൽ ലോകഡൌൺ നിലവിൽ വരും ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപെടുത്തിയിട്ടും കൊവിഡ് രോഗികൾ വർധിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനങ്ങൾ സമ്പൂർണ അടച്ചുപൂട്ടൽ നടപടികളിലേക്ക് കടക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡസ്കിൽ നിന്ന് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ

അവശ്യ സർവീസുകൾക്കും അവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾക്കും നിർമാണ മേഖലക്കും മാത്രമാണ് പ്രവർത്തനാനുമതി ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപങ്ങളും അടഞ്ഞുകിടക്കും

പുതുച്ചേരിയിൽ യാത്രാ ബസുകളിൽ പകുതി സീറ്റിലും ടാക്സിയിൽ മൂന്ന് പേർക്കും ഓട്ടോയിൽ രണ്ട് പേർക്കും യാത്ര ചെയ്യാം

രും കോവിഡ് വ്യാപന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും വാർഡ് തല സമിതികൾ ശക്തിപ്പെടുത്താൻ പഞ്ചായത്ത് ഡയറക്ടർ നിർദേശം നൽകി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടിയ ഗ്രാമപഞ്ചായത്തുകളിൽ സന്ദർശനം നടത്തി തുടർ നടപടിയെടുക്കാൻ ജില്ലയിലെ പെർഫോമൻസ് ഓഡിറ്റ് സൂപ്പർവൈസറെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘം രൂപീകരിക്കും തീവ്രരോഗ വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്താനും ടെസ്റ്റിങ് കേന്ദ്രങ്ങളിൽ ആളുകളെ എത്തിക്കാൻ വാഹന സൌകര്യം ഒരുക്കുന്നതിനും പഞ്ചായത്തുകൾക്ക് നിർദേശം നൽകും രുഭ കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് അവശ്യ സാധനങ്ങളും മരുന്നുകളും വീട്ടിലെത്തിക്കാൻ കൺസ്യൂമർ ഫെഡിന്റെ ഓൺലൈൻ വ്യാപാരം ഇന്നാരംഭിക്കും കോഴിക്കോട്ട് ഓൺലൈൻ വെബ് പോർട്ടൽ മേയർ ഡോ ബീന ഫിലിപ്പ് പ്രകാശനം ചെയ്യും

യു സൌകര്യങ്ങളും വെന്റിലേറ്റർ ഉറപ്പുവരുത്തുന്നതിനായി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘത്തെ ഉൾപ്പെടുത്തി പരിശോധനാ സമിതി രൂപീകരിച്ചു എ കാറ്റഗറി രോഗികളെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിക്കുന്നില്ലെന്ന് സമിതി ഉറപ്പുവരുത്തും

ഇടുക്കി കുമാരമംഗലം പഞ്ചായത്തിലും ഡൊമിസിലറി കെയർ സെന്റർ തുറന്നു പ്രത്യേക രോഗ ലക്ഷണങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്തവരും വീടുകളിൽ ഐസൊലേഷൻ സൌകര്യം ഇല്ലാത്തവർക്കും വേണ്ടിയാണ് ഡൊമിസിലറി കെയർ സെന്റർ ആരംഭിച്ചത് കുമാരമംഗലം കൈങ്കുളം സെന്റ് തോമസ് യു പി സ്കൂളിലാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം നെടുങ്കണ്ടം പഞ്ചായത്ത് യു പി സ്കൂളിലും ഡൊമിസിലറി കെയർ സെന്റർ ആരംഭിച്ചു

ഫയർ എന്ന സന്നദ്ധ സംഘടനയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾക്ക് സേവനം നൽകുന്നത്

രംഭ പ്രായഭേദമില്ലാതെ കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും കോവിഡ് മുന്നണിപ്പോരാളികളായി പരിഗണി ക്കണമെന്നും ഇനിയും വാക്സിൻ ലഭിക്കാത്ത മാധ്യമ പ്രവർത്തകർക്ക് എത്രയും വേഗം സൌജന്യ വാക്സിൻ ലഭ്യമാക്കണമെന്നും ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി കേരള ഘടകം സംസ്ഥാന ഗവൺമെന്റിനോടാവശ്യപ്പെട്ടു

കണ്ണൂരിലെ ആരോഗ്യ വകുപ്പ് ജീവനക്കാർക്കും ജില്ലാ കലക്ടർ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ലോക് ഡൌൺ സാഹചര്യത്തിൽ യാത്രാ സൌകര്യം ഒരുക്കുന്നതിന് ഇന്ന് മുതൽ കെ എസ് ആർ ടി സി സർവ്വീസ് ഏർപ്പെടുത്തും ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് രാവിലെയും വൈകീട്ട് തിരിച്ചും സർവ്വീസ് ഉണ്ടാവും

ആവശ്യപെടുന്നവർക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ എത്തിക്കുന്നതിനും മെഡിക്കൽ സഹായം ലഭ്യമാക്കുന്നതിനും സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്

ജെ പി നേതാവ് ഹിമന്ദ ബിശ്വ ശർമ്മ ഇന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും ഇന്നലെ ചേർന്ന ബി ജെ പി നിയമസഭാ കക്ഷി യോഗം ഏകകണ്ഠമായി ശർമ്മയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുകയായിരുന്നു രുര സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് പുനരാരംഭിക്കും

എമ്മും കേരള കോൺഗ്രസ് എമ്മും തമ്മിലായിരിക്കും ഇന്നത്തെ പ്രധാന ചർച്ച ശനിയാഴ്ച പാലായിൽ ചേർന്ന കേരള കോൺഗ്രസ് നേതൃയോഗം മന്ത്രിസ്ഥാനം സംബന്ധിച്ച പാർട്ടി നിലപാട് രൂപീകരിച്ചിരുന്നു ലോക് താന്ത്രിക് ജനതാദളും ഇന്ന് സി

എമ്മുമായി ഉഭയകക്ഷി ചർച്ച നടത്തും രംഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനുണ്ടായ പരാജയം വിലയിരുത്താൻ ഇന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി ഡൽഹിയിൽ യോഗം ചേരും പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഓൺലൈൻ യോഗം കേരളത്തിലെ പരാജയവും പശ്ചിമബംഗാളിൽ ഒരു സീറ്റുപോലും നേടാൻ കഴിയാതെ പോയ സാഹചര്യവും യോഗം വിലയിരുത്തും രും ഇന്ധനവില വീണ്ടും വർധിച്ചു

രംഭ പ്രശസ്ത നാടക നടൻ പ്രമോദ് ചാല നിര്യാതനായി

ടി മുഹമ്മദിന്റെ കലിംഗ തിയേറ്റേഴ്സിലൂടെ പ്രൊഫഷണൽ നാടക വേദിയിലെത്തിയ പ്രമോദ് വിവിധ നാടക ട്രൂപ്പുകളിൽ അഭിനയിച്ചിട്ടുണ്ട്

സംസ്കാരം ഉച്ചയ്ക്ക് ചെമ്പിലോട് പഞ്ചായത്ത് ശ്മശാനത്തിൽ നടത്തും രുഭ തിരുവനന്തപുരം ആക്കുളം കേന്ദ്ര ഭൌമശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വിരമിച്ച ശാസ്ത്രജ്ഞൻ ഡോ

സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്കുവഹിച്ചിരുന്നു